മന്ത്രിസഭ ശുചിമുറി നിർമ്മാണം ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ പൊതു ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് മൂന്നു സെന്റ് വീതം സർക്കാർ ഭൂമി കണ്ടെത്താൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദേശം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു

യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പൊതു ശുചിമുറികളുടെ അഭാവം പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ശുചിതവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന രീതിയിലാകും ശുചിമുറികളുടെ നിർമ്മാണവും പരിപാലനവും

മറ്റ് ്പ്രധാന നഗരങ്ങളിലും ഈ പദ്ധതി ഏപ്രിലിൽ തന്നെ ആരംഭിക്കാൻ ്നിർദേശം നൽകും

ജില്ലാതല ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുത്തുന്നതു കൂടി ഉദ്ദേശിച്ചാണ് അദാലത്തുകൾ നടത്തുന്നത് കളക്ടറും തഹസിൽദാർമാരും ജില്ലാതല വകുപ്പ് മേധാവികളും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റും സെക്രട്ടറിയും അദാലത്തിൽ പങ്കെടുക്കും നടപടിക്രമങ്ങളും തീരുമാനങ്ങളും അദാലത്ത് നടന്ന് പത്തു ദിവസത്തിനകം പ്രസിദ്ധീകരിക്കും

പോലീസ് റിപ്പോർട്ട് കേരള പോലീസിന്റെ തോക്കുകളും വെടിയുണ്ടകളും കാണാതായിട്ടില്ലെന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ആഭ്യന്തര സെക്രട്ടറി ശരിവച്ചു രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിലെ പിഴവ് മാത്രമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിക്ക് സ്മർപ്പിച്ച പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന പോലീസിന്റെ ആയുധ ശേഖരണത്തിൽ നിന്ന് വൻതോതിൽ വെടിക്കോപ്പുകളും ഉണ്ടകളും റൈഫിളുകളും കാണാതായെന്നാണ് സി എ ജി കണ്ടെത്തൽ